സ്ഥിതിഗതി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വിലയിരുത്തി

കേരളത്തിലും ചികിത്സയിലുള്ളവരുടെ എണ്ണം കുറയുന്നു

ശിവശങ്കറിന്റെ അറസ്റ്റ് കസ്റ്റംസ് രേഖപ്പെടുത്തി

ഡൽഹി രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗ്ിത്തിൽ പങ്കെടുക്കുന്നുണ്ട്

രാജ്യത്തെ കോവിഡ് പ്രിതിരോധം വാക്സിൻ വിതരണം തുടങ്ങിയവയെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്യുന്നത്

ഇന്ത്യയെ ആഗോള നിക്ഷേപത്തിന്റെ ഹോട്ട്സ്പോട്ടാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ തുടരും മഹാമാരിയുടെ കാലത്തും പരിഷ്ക്കാരങ്ങൾക്കുള്ള അവസരം സർക്കാർ നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നും ധനമന്ത്രി പറഞ്ഞു

ഐ ഐ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഓഹരിവിൽപ്പന തുടരുമെന്നും ശ്രീമതി നിർമല സീതാരാമൻ വ്യക്തമാക്കി

സുരക്ഷ നയതന്ത്രം തീവ്രവാദ വിരുദ്ധ പോരാട്ടം എന്നിവ സംബന്ധിച്ച നടപടികളും നഗ്രോട്ട സംഭവത്തിന്റെ വിശദാംശങ്ങളും വിദേശകാര്യ സെക്രട്ടറി പ്രതിനിധികളെ അറിയിച്ചു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിലെ സ്ഥിതി സംബന്ധിച്ച് തെരുഞ്ഞെടുക്കപ്പെട്ട നയതന്ത്ര പ്രതിനിധികളടങ്ങുന്ന സമിതിയ്യമായി വിദേശകാര്യമന്ത്രാലയം നടത്തുന്ന ചർച്ചാപരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ നടന്നത്

ഇന്ന് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുന്ന ന്യൂനമർദ്ദം കാരയ്ക്കലിലിനും മാമല്ലപുരത്തിനും ഇടയിൽ നാളെ തീരം തൊടും തമിഴ്നാട്ടിലെ അരിയല്ലൂർ പുതുച്ചേരിയിലെ കാരയ്ക്കൽ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് കനത്ത മഴക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി നിവർ എന്ന് പേരിട്ടിരിക്കുന്ന ചുഴലിക്കാറ്റിന്റെ അപകട സാധൃത കണക്കിലെടുത്തു മേഖലയിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി സംസ്ഥാനത്തെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ ചെന്നൈയിൽ ഇന്നലെ ഉന്നതതലയോഗം ചേർന്നു

തമിഴ്നാടിനും പുതുച്ചേരിക്കും സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രം നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി

മികച്ച സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയ വിമാന സേവനം ഉറപ്പു വരുത്തിയ എയർ ഇന്ത്യയേയും ഇന്ത്യൻ വ്യോമസേനയേയും രാഷ്ട്രപതി അഭിനന്ദിച്ചു ആന്ധ്രപ്രദേശിലെ തിരുപ്പതിയിലെത്തുന്ന രാഷ്ട്രപതി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം സന്ദർശിക്കും

ഇരുരാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിവരുന്ന കൂടികാഴ്ചകളുടെ ഭാഗമായാണ് സന്ദർശനം ഉഭയകക്ഷി സഹ്റക്രണം അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്തും

കോവിഡിനെ നേരിടുന്നതിൽ രാജ്യം കൈവരിച്ച സൂപ്രധാന നേട്ടമായാണ് നിരക്കിലെ ഈ വർധനവിനെ വിലയിരുത്തുന്നത്

നാലു ലക്ഷത്തി മുപ്പതിനായിരത്തോളം രോഗികൾ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ഇപ്പോൾ ഏകാച്ചി കാക്കനാട് ജില്ലാജയിലിൽ എൻഫോഴ്സ്മെന്റ ഡയറ്ക്ട്രേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിലാണ് ശിവശങ്കർ ശ്രീവശങ്കറെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ് കസ്റ്റംസിന്റെ ലക്ഷ്യം

കോവിഡിന്റെ സാഹചര്യത്തിൽ തീയതി നീട്ടണമെന്ന് പെൻഷൻകാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു

ടി

സി ആർ ലാബ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ന്യൂഡൽഹി ഒ്എ

ജനുവരി മാസത്തോടെ രണ്ടു കോടി വാക്സിൻ ഡോസുകൾ ലഭ്യമാകുമെന്നാണ് കണക്കാക്കുന്നത്